നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത ജനത കർഫ്യൂ ഏറ്റെടുത്ത് രാജ്യം ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് നന്ദി പ്ലൂകാശിപ്പിച്ച് ജനങ്ങൾ

സ്ഥിരീകരണം

രാവിലെ ഏഴു മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ ജനങ്ങൾ വീടുകളിൽ തന്നെ കഴിയാനാണ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത്

രാജ്യത്തെ മ്പാടും കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുകയാണ് വൃാഴാഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് പ്രധാനമന്ത്രി ജനതാ കർഫ്യൂവിന് ആഹ്വാനം ചെയ്തത് കൂടാതെ ഡോക്ടർമാർ നേഴ് ആരോഗ്യപ്രവർത്തകർ ശുചീകരണ തൊഴിലാളികൾ സുമാർ സർക്കാർ ജീവനക്കാർ പൊലീസ് മാധൃമപ്രവർത്തകർ തുടങ്ങി കോവിഡ് പ്രതിരോധത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ചെയ്തിരുന്നു അഭിനന്ദിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ട്രെയിൻ ഗതാഗതം പൂർണമായും സ്തംഭിച്ചു

ഓട്ടോയും ടാക്സിയും ഉൾപ്പെടെയുള്ള വയും സർവീസ് നടത്തുന്നില്ല

ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് രാജ്യ തലസ്ഥാനത്ത് അനവധി ആളുകളാണ് തങ്ങളുടെ വീടുകളുടെ ബാൽക്കണികളിലും വാതിൽക്കലും നിന്നുർക്കാണ്ട് അഭിനന്ദനത്തിന്റെ സൂചകമായി അഞ്ച് മിനിറ്റ് നേര്യുടിക്കെയ്യടിക്കുകയും മണി മുഴക്കുകയും ചെയ്യുകയുണ്ടായി

ലോക് സഭാ സ്പീക്കർ ഓം ബിർല മൃന്തിമാരായ രാജ്നാഥ് സിംഗ് പ്രകാശ് ജാവദേക്കർ ധർമ്മേന്ദ്ര പ്ര്യാൻ നിർമ്മല സീതാരാമൻ എന്നിവരും ബി ജെ

നദ്ദ ഉൾപ്പെടെയുള്ള പ്രമുഖരും തങ്ങളുടെ വീടുകളിൽ നന്നി പ്രകടനത്തിൽ പങ്കുചേർന്നു

കൊറോണ വൈറസ് വ്യാപനം തടയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത ജനതാ കർഫ്യൂവിന് കേരളവും സമ്പൂർണ പിന്തുണ നൽകുകയാണ് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതെ കേരള ജനത കർഫ്യൂ നിർദേശം പാലിക്കുകയാണ്

എസ് ആർ

യും മെട്രോറെയിലും ഉൾപ്പെടെ സർവ്വീസ് നടത്തുന്നില്ല സ്വകാര്യബസുകളും ഓട്ടോ ടാക്സി സർവീസുകളുമില്ല മെഡിക്കൽ സ്റ്റോറുകൾ തുറന്നിട്ടുണ്ട് എല്ലാവരും വീടുകളിൽ കഴിയുന്നതിനാൽ പരിസര ശുചീകരണം നടത്തണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭ്യർഥനയും ജനങ്ങൾ പാലിക്കുന്നുണ്ട്

ജനതാ കർഫ്യൂവിനുള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ് ക്കുറ്റെടുത്ത സംസ്ഥാന സർക്കാർ സമയപരിധി നാളെ രാവ്ടിക്കൽ വരെ തുടരാൻ തീരുമാനിക്കുക യായിരുന്നു

പ്രധാനമന്ത്രി യുടെ ആഹ്വാനത്തെ തുടർന്ന് ഉത്തർപ്രദേശിൽ സമ്പൂർണ ജനതാ കർഫ്യൂവാണ് ദൃശ്യമായത് മെട്രോ ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല കടകമ്പോള ങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് തൊഴിലാളി സംഘടനകൾ ജനതാ കർഫ്യൂ വിന് പിന്തുണ നൽകി

പ്രഭാത സവാരി അടക്കമുള്ള ശീലങ്ങൾ മാറ്റിവച്ചാണ് ജനങ്ങൾ കർഫ്യൂവിനോട് സഹകരിച്ചത്

എന്നാൽ ഭക്ഷണശാലകളിൽ നിന്നുള്ള ഹോം ഡെലിവറിക്ക് മുടക്കമില്ല

രാജ്യത്ത് കൊറോണ വൈറസ് ബാധ ഏറ്റവും കൂടുതൽ പേർക്ക് സ്ഥിരീകരിച്ച മഹാരാഷ്ട്രയിലും ജനതാ കർഫ്യൂ പൂർണ്ണമാണ്

മെട്രോ ട്രയിനുകൾ അരമണിക്കൂർ ഇടവിട്ട് മാത്രമാണ് സർവ്വീസ് നടത്തുന്നത്

സംസ്ഥാന അതിർത്തികൾ അടച്ചിടുന്നതിസ്റ്റുപ്പി അന്തർസംസ്ഥാന ബസ് സർവ്വീസുകൾ റദ്ദാക്കുന്നതിനുടി മുഖ്യമന്ത്രി യദ്യൂരപ്പ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

കേന്ദ്ര റെയിൽവേ മന്ത്രി പീയുഷ് ഗോയലാണ് ട്വിറ്ററിലൂടെ ഇക്കാര്യം അറിയിച്ചത് ഇന്ന് പൂലർച്ചെ നാല് മണിക്ക് മുമ്പ് ആരംഭിച്ച സർവ്വീസുകൾ യാത്ര തുടരും അവശ്യ സേനവങ്ങളുടെ ലഭ്യത തടസ്സപ്പെടാതിരിക്കുന്നതിന് ചരക്ക് ട്രെയിനുകളുടെ സർവ്വീസുകൾ തുടരും

രാജ്യത്ത് വൈറസ് വ്യാപനം തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ലക്ഷ്യമിട്ടാണ് കമ്മിറ്റി രൂപീകരിച്ചത് നിതി ആയോഗ് അംഗം ഡോ

കേന്ദ്ര ആരോഗൃ സെക്രട്ടറി പ്രീതി സുതൻ ഐ സി എം ആർ

ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

നഗരങ്ങളിലെ കുടിയേറ്റക്കാർ എവിടെയാണോ അവിടെതന്നെ കഴിയണമെന്നും കൊറോണ ഭീതിയിൽ വീടുകളിൽ എത്താനായി ട്രെയിൻ ബസ് യാത്രകൾ ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു

അവശ്യ സേവനങ്ങൾ ഉറപ്പാക്കാൻ ചീഫ് സെക്രട്ടറിയും ഹോം സെക്രട്ടറിയും പൊലീസ് മേധാവിയും അംഗങ്ങളായ സമിതി രൂപീകരിച്ചു ധാന്യശേഖരം ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ പ്പ്യാപാരി വ്യവസായി സംഘടനകളുടെ യോഗം അടുത്തുട്ടിപ്പ്സം വിളിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

കാസർകോട് ജില്ല സമ്പൂർണ്ണമായി അടയ്ക്കും

കാസർകോട് ജില്ലകളിൽ നിന്ന് മറ്റ് ജില്ലകളിലേക്ക് സഞ്ചരിക്കരുത് ദീർഘദൂര യാത്രകൾ നിർബന്ധമായും ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു